എഫ് സെക്രട്ടറിയേറ്റ് ഉപരോധം അൽപ സമയത്തിനകം അവസാനിക്കും

ഓർഡിനൻസിന് പകരമുള്ളതാണ് ബില്ല് ബില്ലിന്റെ പരി ഗണനാ വേളയിലും വോട്ടെടുപ്പിലും പങ്കെടുക്കണമെന്ന് ബ്രി

പി അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ബില്ലിനെ എതിർക്കുമെന്ന് പ്രതിപക്ഷം അറിയിച്ചു കോൺഗ്രസ് നേതാക്ക ളായ അധിർരഞ്ജൻ ചൌദരിയും ശശിതരൂരും തൃണമൂൽ കോൺഗ്ര സിലെ സൌഗതാ റോയിയും മുത്തലാഖ് ബില്ലിനെ എതിർത്ത് പ്രമേയം കൊണ്ടുവരുമെന്ന് റിപ്പോർട്ടുണ്ട്

പി അംഗം എൻ കെപ്രേമചന്ദ്രനും മുസ്ലിം ലീഗിലെ പി കെ കുഞ്ഞാലിക്കു ട്ടിയും ബില്ലിനെതിരെ സംസാരിക്കാൻ സ്പീക്കർക്ക് പേര് നൽകി യിട്ടുണ്ട്

നികുതി വെട്ടിപ്പിന് ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീക രിക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് ിധനമന്ത്രി നിർമല സീതാരാമൻ നിർദേശം നൽകി നികുതി വെട്ടിപ്പ് സംബന്ധിച്ച അന്വേഷണം കൂടു തൽ കാരൃക്ഷമമാക്കാൻ ആദായി നികുതി എൻഫോഴ്സ്മെന്റ് റവന്യൂ ഇന്റലിജൻസ് വകുപ്പുകൾ വിവരങ്ങൾ പരസ്പരം കൈമാ റണമെന്നും മന്ത്രി ഡൽഹിയിൽ പറഞ്ഞു നികുതിദായകർ നികുതി അടയ്ക്കുന്നത് ഒരു ശിക്ഷയായി കാണേ ണ്ടതില്ലെന്നും രാജ്യത്തിന്റെ പുരോഗതിക്കുള്ള സംഭാവനയാണ് നികുതിയെന്നും മന്ത്രി വൃക്തമാക്കി

ധനമന്ത്രി നിർമലാ സീതാരാമൻ വീഡിയോ കോൺഫറൻസിം ഗ് വഴി യോഗത്തിൽ അധ്യക്ഷത വഹിക്കും

ഇല ക്ട്രിക് വാഹനങ്ങൾക്കും സൌരോർജ പദ്ധതികൾക്കും ജിഎസ്ടി കുറയ്ക്കുന്നത് സംബന്ധിച്ച് യോഗം തീരുമാനമെടുത്തേക്കും സംസ്ഥാനത്ത് പൊലീസ് രാജാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ആഭ്യന്തര വകുപ്പിന്റെ ചുമതലകൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയ്ക്ക് ആ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ലെന്നും നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു യുഡിഎഫ് സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് ഉപരോധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല ജനകീയ സമരങ്ങളെ തോക്കും ലാത്തിയും ഉപയോഗിച്ച് അടിച്ചമർത്തുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു തെറ്റ് തിരുത്തലല്ല ആവർത്തിക്കലാണ് ഗവൺമെന്റ് നയമെന്ന് എ

സി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി പറഞ്ഞു

എ ഉൾപ്പെടെ സി

ഐ പ്രവർത്തകരെ അക്രമിച്ചത് ഇതിന് തെളിവാ ണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി തിരുവനന്തപുരം യൂനിവേഴ്സിറ്റി കോളജിലെ അക്രമവും ക്രമക്കേടും സംബന്ധിച്ച് ്രജുഡീഷ്യൽ അന്വേഷണം നടത്തുക പിഎസ് സി പരീക്ഷയിലെ തട്ടിപ്പ് സിബിഐ അന്വേഷിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യു ഡി എഫ് സെക്രട്ടേറി യറ്റിന്റെ മൂന്ന് ഗേറ്റുകളും ഉപരോധിച്ചാണ് യു

രാവിലെ ആറിന് തുടങ്ങിയ ഉപരോധം ഉച്ചക്ക് ഒന്നിന് അവസാനിക്കും എൽദോ എബ്രഹാം എം എൽ എയെ പൊലീസ് മർദ്ദിച്ച സംഭവ ത്തിൽ പൊലീസിനെതിരെ എടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കു ന്നുവെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറ ഞ്ഞു സംഭവം നടന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ പ്രതിഷേധം അറി യിച്ചുവെന്നും മുഖ്യമന്ത്രി നടപടി എടുക്കുമെന്ന് ഉറപ്പു നൽകിയി ട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു

സി പരീക്ഷാ ക്രമക്കേടിൽ സമഗ്ര അന്വേഷണം ആവ ശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് എറണാകുളം കലക്ട്രേറ്റിലേക്ക് നട ത്തിയ മാർച്ച് അക്രമാസക്തമായി ബാരിക്കേട് തകർത്ത് മുന്നേ റാൻ ശ്രമിച്ച പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഏതാനും പ്രവർത്തകർക്ക് പരുക്കേറ്റിട്ടുണ്ട് തൃശൂ രിലും യൂത്ത് ലീഗ്കലക്ടറേറ്റ് മാർച്ച് നേരിയ സംഘർഷത്തിൽ കലാ ശിച്ചു കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കേരളാ കോൺഗ്ര സ് എമ്മിലെ സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനെ തെരഞ്ഞെടുത്തു പ്രസിഡന്റ് പദവി പങ്കിടണമെന്ന കോൺഗ്രസിന്റെ നിർദേശത്തെ തുടർന്ന് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതോടെ യാണ് ജോസ് കെ മാണി പക്ഷത്തെ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായത് ആദ്യ എട്ടു മാസം സെബാ സ്റ്റ്യൻ കുളത്തിങ്കലും തുടർന്ന് ആറു മാസം പി ജെ ജോസഫ് വിഭാ ഗത്തിലെ അജിത് മുതിരമലയും പ്രസിഡന്റാവണമെന്നായിരുന്നു കോൺഗ്രസ് മുന്നോട്ടു വെച്ച നിർദേശം ഇത് അംഗീകരിച്ചതായി ജോസഫ് പക്ഷം അറിയിച്ചു ധാരണയെകുറിച്ച് അറിയില്ലെന്നാണ് ജോസ് കെ മാണി വിഭാഗം പ്രതികരിച്ചത് കേരളാ കോൺഗ്രസ് എമ്മിലെ ്തർക്കത്തെ തുടർന്ന് ഇന്നലെ കോൺഗ്രസ് വിട്ടു നിന്ന തിനാൽ കാറം തികയാതെ തെരഞ്ഞെടുപ്പ് ഇന്നത്തേക്ക് മാറ്റുക യായിരുന്നു രാത്രി മുഴുവൻ നീണ്ട ചർച്ചകളിലും തീരുമാനമാകാ തെ വന്നതിനെ തുടർന്ന് കോൺഗ്രസ് തീരുമാനം പ്രഖ്യാപിക്കുക യായിരുന്നു കർണാടകയിൽ ഗവൺമെന്റ് രൂപവത്കരണ ശ്രമങ്ങൾ ഊർജ്ജി തമായി നടക്കുന്നതിനിടെ സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടി ക്കാഴ്ച നടത്തി ജഗദീഷ് ഷട്ടാർ അരവിന്ദ് ലിംബാവലി ബസവ രാജ് ബൊമ്മൈ ജെ സി മധു സ്വാമി എന്നിവരാണ് അമിത്ഷായെ കണ്ടത് ഗവൺമെന്റ് രൂപവത്കരണത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഉപദേശം തേടിയതായി നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു മഹാരാഷ്ട്രയിലും ഹിമാചൽ പ്രദേശിലും ഭൂചലനം മഹാരാഷ്ട്ര യിൽ വീടു തകർന്ന് ഒരാൾ മരിച്ചു ഹിമാചൽ പ്രദേശിൽ നാശന ഷ്ടങ്ങളുണ്ടായതായി റിപ്പോർട്ടില്ല ഇന്നു പുലർച്ചെ ഒരു മണിയോ ടെയായിരുന്നു ഭൂചലനം മഹാരാഷ്ട്രയിലെ പൽഘാർ ജില്ലയിൽ ദഹാനു തൽസാരി താലൂ ക്കുകളിലായിരുന്നു ഭൂചലനം

ബുധനാഴ്ചയും മേഖലയിൽ നേരിയ ഭൂച ലനം അനുഭവപ്പെട്ടിരുന്നു കാസർകോട് ബദിയടുക്കയിൽ ഒരു കുടുംബത്തിലെ രണ്ടു കുട്ടി കൾ പനി ബാധിച്ച് മരിച്ച സംഭവത്തിൽ ആരോഗ്യ വകുപ്പ് പരി ശോധന തുടങ്ങി കുട്ടികൾ ചികിത്സയിൽ കഴിഞ്ഞ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ശേഖരിച്ച സാംപിളുകൾ വിദഗ്ദ പരിശോധനകൾക്കായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട് ബദിയടുക്ക കന്യാപടിയിലെ സിദ്ദീഖിന്റെ മക്കളായ നാലു വയസു കാരൻ മൊയ്തീൻ ശിനാസ് എട്ടു മാസം പ്രായമുള്ള സിദ്റത്തുൽ മുൻതഹ എന്നിവരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് കുട്ടികളുടെ മാതാവും പനി ബാധിച്ച് മംഗുളൂരുവിലെ ആശുപത്രിയിൽ ചികി ത്സയിലാണ്

അതേസമയം നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു കല്ലട ജലസേചന പദ്ധതിയുടെ ജലവിനിയോഗക്ഷമത വർധിപ്പി ക്കുന്നതിനും മെച്ചപ്പെട്ട ജലപരിപാലനം ഉറപ്പാക്കുന്നതിനും സാ ധ്യതകൾ ആരായാൻ നിയമസഭാ വിഷയനിർണയ സമിതി കല്ലട ഡാം സന്ദർശിക്കുന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായ മൂന്നാം നമ്പർ സമിതിയിൽ എം എൽ എമാരായി വി

ബൽറാം ജി

മാക്സി മോൻസ് ജോസഫ് എൻ

നെല്ലിക്കുന്ന് പി

കണ്ണൂർ ആന്തൂരിലെ പ്രവാസി വ്യവസായി സാജന്റെ മരണത്തിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് പരിഗണിക്കും ആന്തൂർ മുനിസിപ്പാലിറ്റിക്കെതിരെ ജസ്റ്റിസ് അനിൽ കെ

കേസിൽ കക്ഷി ചേരാൻ സാജന്റെ സഹോ ദരൻ ശ്രീജിത്ത് നൽകിയ അപേക്ഷയും കോടതി ഇന്ന് പരിഗണി ക്കും മലബാർ റിവർ ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച ഏഴാമത് രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിങ് മത്സരങ്ങൾ നാളെ കോഴി ക്കോട്ട് ആരംഭിക്കും കോടഞ്ചേരി ചാലിപ്പുഴ തിരുവമ്പാടി ഇരുവഴിഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും ഇന്തൃ ഇറ്റലി മലേഷ്യ നേപ്പാൾ ഇസ്രായേൽ ഓസ്ട്രേലിയ അമേരിക്ക ബ്രിട്ടൻ റഷ്യ തുടങ്ങി ഒൻപത് രാജൃങ്ങളിലെ താരങ്ങളാണ് ഇത്തവണ മത്സരത്തി നെത്തുന്നത് കേരള ടൂറിസവും അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും കോഴിക്കോട് ജില്ലാ ടൂറിസം കൌൺസിലും സംയുക്തമായാണ് രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിങ് മത്സരം സംഘടിപ്പിക്കുന്നത് രാജീവ് ഗാന്ധി വധക്കേസിൽ വെല്ലൂർ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന നളിനി ശ്രീഹരൻ ഒരു മാസത്തെ പരോ ളിൽ പുറത്തിറങ്ങി മകളുടെ വിവാഹത്തിൽ പ്രങ്കെടുക്കാനാണ് മദ്രാസ് ഹൈക്കോടതി നളിനിക്ക് പരോൾ അനുവദിച്ചത് വെല്ലൂർ വിട്ടു പോകരുത് രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെടരുത് മാധൃമങ്ങ ളോട് സംസാരിക്കരുത് തുടങ്ങിയ നിബന്ധനകളോടെയാണ് പരോൾ

മൂന്ന് ആനകളാണ് ഇന്ന് രാവിലെ മുതൽ വയലിനോട് ചേർന്ന ഇല്ലിച്ചോട്ടിലും പരിസ രത്തുമായി നിലയുറപ്പിച്ചിരിക്കുന്നത് കാസർകോട് മഞ്ചേശ്വരത്ത് നിന്ന് സ്വർണ്ണക്കടത്ത് സംഘം തട്ടി ക്കൊണ്ടുപോയ പ്ലസ് വൺ വിദ്യാർത്ഥിയെ കണ്ടെത്തി

മൂന്ന് ദിവസം മുമ്പ് സഹോദരിക്കൊപ്പം മംഗുളൂരുവിലെ കോള ജിലേക്ക് പോകുന്നതിനിടെയാണ് കാറിലെത്തിയ സംഘം വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയത് കുട്ടിയുടെ അമ്മാവനുമായി ഒരു സംഘം നടത്തിയ സ്വർണ്ണ ഇടപാടിലെ തർക്കമാണ് തട്ടി ക്കൊണ്ടു പോകുന്നതിലേക്ക് നയിച്ചതെന്ന് പറയപ്പെടുന്നു നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ തൊടുപുഴ ജില്ലാ സെഷൻസ് കോടതി തള്ളി

ഐ സാബു സിവിൽ പൊലീസ് ഓഫീസർ സജീവ് ആന്റണി എന്നവരുടെ ജാമ്യാ പേക്ഷയാണ് കോടതി തള്ളിയത്

മാനന്തവാടി ഒഴ ക്കോടി മക്കിക്കൊല്ലി ലിന്റ ഭവൻ ബാബൂ ആണ് ഇന്നലെ രാത്രി മ രിച്ചത് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദുബായിയിലേ ക്ക് പ്രതിദിന സർവീസ് ഇന്ന് ആരംഭിക്കും ഗോഎയർ കമ്പനിയാ ണ് സർവ്വീസ് നടത്തുന്നത്

ബ്രിട്ടണും ഇറാനും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് പിടിച്ചെടു ക്കപ്പെട്ട കപ്പലുകളിലെ മലയാളികളായ ജീവനക്കാരെ വിട്ടയക്കു ന്നതിന് ആവശ്യമായ നടപടി വിദേശ മന്ത്രാലയവുമായി ബന്ധ പ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന് ഓൾ കേരള സീമെൻസ് അസോസിയേഷൻ ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണവേട്ട മല പ്പുറം സ്വദേശിയിൽ നിന്ന് ഒരു കിലോ സ്വർണം എയർ കസ്റ്റംസ് ഇന്റലിജൻസ് പിടികൂടി